എൽ എ മാരുടെ രാജിക്കാരൃ ത്തിൽ സ്പീക്കർക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന് സുപ്രീംകോടതി നിയമസഭാ നടപടികളിലോ വിശ്വാസവോ ട്ടെടുപ്പിലോ പങ്കെടുക്കാൻ വിമതരെ നിർബന്ധി ക്കരുതെന്നും കോടതി നിർദേശം

എൽ എ മാരുടെ രാജിക്കാര്യ ത്തിൽ സ്പീക്കർക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന് സൂപ്രീം കോടതി വ്യക്തമാക്കി

ഇക്കാര്യത്തിൽ സ്പീക്കർ കെ ആർ രമേഷ് കുമാറിന് നിർദേശം നൽകാനോ നിരീക്ഷണം നടത്താനോ കോടതി തയ്യാറാവുന്നില്ലെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു രാജിക്കത്തുകൾ പരിശോധിച്ച് അനുയോജ്യമായ സമ യത്തെടുക്കുന്ന തീരുമാനം സ്പീക്കർ സുപ്രീംകോടതിയെ അറി യിക്കണം അതേസമയം വിശ്വാസവോട്ടെടുപ്പിലോ നിയമസഭാ നട പടികളിലോ വിമത എം

എ മാരെ പങ്കെടുക്കാൻ നിർബന്ധി ക്കരുതെന്നും ഡിവിഷൻബെഞ്ച് ഉത്തരവിട്ടു കോടതിവിധിയെ ബി

പി നേതാവ് ബി

സഖ്യഗവൺമെന്റിന് ഇനി തുടരാനാവില്ലെന്നും അദ്ദേഹം ബംഗലൂരുവിൽ പ്രതികരിച്ചു വിമത എം എൽ എ മാരുടെ ധാർമ്മിക വിജയമാണ് കോടതി ഉത്തരവിൽ പ്രകടമായതെന്നും യെദ്യൂരപ്പ വിലയിരുത്തി

എ മാരുടെ രാജിക്കാര്യത്തിൽ ഉചിതസമയത്ത് തീരുമാനമെടുക്കുമെന്നും സ്പീക്കർ അറിയിച്ചു നെടുങ്കണ്ടത്ത് പൊലീസ് കസ്റ്റഡിയിൽ മരിച്ച രാജ്കുമാറിന്റെ ഭാര്യയ്ക്ക് ഗവൺമെന്റ് ജോലി നൽകാൻ മന്ത്രിസഭായോഗം തീരു മാനിച്ചു

രാജ്കുമാറിന്റെ ഭാര്യ അമ്മ രണ്ട് മക്കൾ എന്നിവർക്ക് നാല് ലക്ഷം രൂപ വീതമാണ് നൽകുക ഇടതുമുന്നണി നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും കേന്ദ്രനയങ്ങൾക്കെതിരായ നിലപാട് തീരുമാനിക്കാനാണ് യോഗ ം ചേരുന്നതെങ്കിലും യൂണിവേഴ്സിറ്റി കോളേജ് പ്രശ്നവും നെടു ങ്കണ്ടം കസ്റ്റഡി മരണവും ചർച്ചയായേക്കുമെന്നാണ് റിപ്പോർട്ട് ഉച്ചകഴിഞ്ഞ് മൂന്നിന് എ

ജി സെന്ററിലാണ് യോഗം റാങ്ക് പട്ടിക തയ്യാറാക്കുമ്പോൾ നൽകുന്ന ഗ്രേസ് മാർക്ക് വൃവസ്ഥകളിൽ പി എസ്

സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഗ്രേസ് മാർക്ക് നൽകി ല്ല വിജയികൾക്ക് മാത്രമായിരിക്കും ഗ്രേസ് മാർക്ക് എന്നാൽ ദേശീ യതല മത്സരങ്ങളിൽ പങ്കെടുത്താലും ഗ്രേസ് മാർക്ക് ലഭിക്കും യൂണിവേഴ്സിറ്റി കോളേജിലെ വധശ്രമക്കേസ് പ്രതികൾ സർട്ടി ഫിക്കറ്റിൽ കൃത്രിമം കാണിച്ച് ഗ്രേസ് മാർക്ക് വാങ്ങിയെന്ന പരാ തിയെ തുടർന്നാണ് പി

സി യുടെ നടപടി ലൈഫ് മിഷൻ രണ്ടാംഘട്ടത്തിലെ ഗുണഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ വീടുനിർമ്മാണ സാമഗ്രികൾ ലഭ്യമാക്കാൻ വ്യാപാരികളുമായി തിരുവനന്തപുരത്ത് ധാരണാപത്രം ഒപ്പിട്ടു മുഖ്യമന്ത്രിയും മന്ത്രി എ സി മൊയ്തീനും ചടങ്ങിൽ പങ്കെടുത്തു സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിലെ കെട്ടിട നിർമ്മാണം ക്രമവൽക്കരണം കെട്ടിടനമ്പർ എന്നിവയുമായി ബന്ധപ്പെട്ട തീർപ്പാകാത്ത അപേക്ഷകളിൽ തീരുമാനമെടുക്കാൻ ജില്ലാതല അദാലത്തുകൾ മറ്റന്നാൾ ആരംഭിക്കും

സംസ്ഥാനത്തെ മികച്ച പൊലീസ് സ്റ്റേഷനു കൾക്ക് പ്രവർത്തന മികവ് അവാർഡുകൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു

ചേർത്തല പൊലീസ് സ്റ്റേഷൻ രണ്ടാം സ്ഥാനവും തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷൻ മൂന്നാം സ്ഥാനവും നേടി സംസ്ഥാനത്തെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട ഡാറ്റാബാ ങ്കിലെ തെറ്റുതിരുത്താൻ ലഭിച്ച അപേക്ഷകളിൽ ഒരു മാസത്തി നകം അന്തിമതീരുമാനമെടുക്കണമെന്ന് മന്ത്രി വി

ആവശ്യമെങ്കിൽ അദാലത്തുകൾ സംഘടിപ്പിച്ച് അപേക്ഷകളിൽ തീരുമാനമെടുക്കണമെന്നും മന്ത്രി തിരുവനന്ത പുരത്ത് പറഞ്ഞു

ഐ ഉൾപ്പെടെ മൂന്ന് പാർട്ടികൾക്ക് ദേശീയകക്ഷി പദവി നഷ്ടമായേക്കും കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിലെ നിരാ ശാജനകമായ പ്രകടനം മുൻനിർത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് ദേശീയപാർട്ടി പദവി പിൻവലിക്കാതിരിക്കാൻ കാരണ മാവശ്യപ്പെട്ട ഉടൻ നോട്ടീസ് നൽകുമെന്നാണ് റിപ്പോർട്ട്

പി എൻ സി പി കക്ഷികൾക്കാണ് പദവി നഷ്ടമാകുന്നത്

ഒറ്റത്ത വണയായി ആജീവനാന്ത നികുതി ഈടാക്കുന്നത് നിയമപരമ ല്ലെന്ന് ജസ്റ്റിസ് എസ്

ആഡംബര വാഹനം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്നും ആജീവനാന്ത നികുതി ഒന്നിച്ചടയ്ക്കണമെന്നും കാണിച്ച് ഹർജി ക്കാർക്ക് ഗവൺമെന്റ് നൽകിയ നിർദേശം ഹൈക്കോടതി റദ്ദാക്കി പുതുച്ചേരിയിൽ ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ രജി സ്ട്രേഷൻ റദ്ദാക്കാൻ സംസ്ഥാനത്ത് അധികാരികൾക്ക് സാധി ക്കില്ലെന്നും കോടതി പറഞ്ഞു വാഹനം രജിസ്റ്റർ ചെയ്ത് നൽകി യവർക്ക് മാത്രമേ അത് റദ്ദാക്കാനാവൂ എന്നും ഒരു വാഹനത്തിന് രണ്ടിടത്ത് രജിസ്ട്രേഷൻ അനുവദനീയമല്ലെന്നും കോടതി വ്യക്ത മാക്കി ഇന്ത്യൻ നാവികസേനാ മുൻ ഉദ്യോഗസ്ഥൻ കുൽഭൂഷൺ ജാദ വിന് പാകിസ്ഥാൻ വധശിക്ഷ വിധിച്ചതിനെതിരെ ഇന്ത്യ സമർപ്പിച്ച ഹർജിയിൽ ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇന്ന് വിധി പറയും

ഇന്ന് കർക്കിടകം ഒന്ന് രാമായണ മാസാചരണത്തിന് തുട ക്കമായി

മനസ്സും ശരീരവും നല്ല ചിന്തകളും നല്ല ചര്യകളുംകൊണ്ട് പവിത്രമാ ക്കാനും ഈശ്വര ചിന്തയിലൂടെ ആത്മീയ സംസ്കരണം നേടി യെടുക്കാനും വിശ്വാസികൾ ശ്രമിക്കുകയാണ് ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും രാവിലെ തന്നെ രാമായണ പാരായണത്തിന് തുടക്കമായി

തബല മാന്ത്രികൻ സക്കീർ ഹുസൈൻ പ്രശസ്ത നർത്തകി സോണൽ മാൻസിംഗ് നർത്തകനും കൊറിയോഗ്രാഫറുമായ ജതിൻ ഗോസ്വാമി ഗുരു കെ കല്ല്യാണസുന്ദരം പിള്ള എന്നിവരെ ഫെല്ലോഷിപ്പിന് തെരഞ്ഞെടുത്തു മോഹിനിയാട്ടത്തിൽ ഗോപികാവർമ്മയും കൂടിയാട്ടത്തിൽ എ

ന്യൂഡൽഹിയിൽ നടക്കുന്ന പ്രത്യേക ബഹുമതിദാന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും

ഒരു ലക്ഷം രൂപയും താമ്രപത്രവും അംഗവസ്ത്രവും ഉൾപ്പെടുന്നതാണ് അക്കാ ദമി അവാർഡ് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ കഴിഞ്ഞ വർഷത്തെ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ യുവ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു

സർഫാസി നിയമം മൂലമുണ്ടായ വിഷയങ്ങൾ പഠിച്ച് ശുപാർശകൾ സമർപ്പിക്കുന്നതിന് നിയമസഭാ അഡ്ഹോക് കമ്മിറ്റി കണ്ണൂരിൽ നാളെ നടത്താനിരുന്ന യോഗം മാറ്റി

ശർമ്മ അധ്യക്ഷനായ സമിതി അടുത്ത മാസം ആറിന് ആയിരിക്കും കണ്ണൂ രിൽ സിറ്റിംഗ് നടത്തുക പയ്യന്നൂർ ആസ്ഥാനമായ തുരീയം സംഗീതോത്സവ കമ്മറ്റിയുടെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു തുരീയം സുവർണ്ണ മുദ്രയ്ക്ക് മലയാള മനോരമ കൊച്ചി യൂണിറ്റിലെ ചീഫ്സബ് എഡിറ്റർ ഷാജൻ സി മാത്യുവും കീർത്തി മുദ്ര പുരസ്കാരത്തിന് കഥകളി കലാകാരൻ ടി

പ്രേം നാഥും കണ്ണൂരിലെ ഉർസുലൈൻ സീനിയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി മീരാ വിജയും അർഹരായി തുരീയം സംഗീതോത്സവത്തിന്റെ സമാപന ദിവസമായ ഞായറാഴച പുരസ്കാരങ്ങൾ സമ്മാനിക്കും വയനാട് മുത്തങ്ങ ചെക്പോസ്റ്റിൽ ലഹരി ഗുളികകളുമായി യുവാവ് പിടിയിലായി

മൈസൂരുവിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന കേരള ആർ

സി ബസ്റ്റിലാണ് ഇയാൾ യാത്രചെയ്തിരുന്നത്

കൊല്ലം ജില്ലാ പോക്സോ പ്രത്യേക കോടതിയുടേതാണ് വിധി അഞ്ചൽ ഏരൂർ സ്വദേശി രാജേഷ് കുട്ടിയുടെ അമ്മയുടെ സഹോദരി ഭർത്താവാണ്

വയോജനങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സ് ഭിന്നശേഷിക്കാർ എന്നി വരെ സാമ്പത്തികമായും സാമൂഹികമായും ഉയർത്തുന്നതിന് കുടുംബശ്രീയുടെ അയൽക്കൂട്ട രൂപീകരണ പദ്ധതിക്ക് തൃശൂരിൽ തുടക്കമായി സ്വയം സംരംഭങ്ങൾക്ക് സഹായം ആരോഗ്യ പരി ചരണങ്ങൾക്ക് ആരോഗ്യ കേന്ദ്രങ്ങളുടെ സഹായം ഉറപ്പാക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് പദ്ധതി തൊവരിമല ഭൂസമരത്തിന് ഐക്യദാർഢ്യവുമായി നാളെ വയ നാട് കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു

അട്ടപ്പാടി സമഗ്ര ആരോഗൃ പദ്ധതി ഒന്നാം വാർഷികം ഓഗസ്റ്റ് രണ്ടിന് അഗളിയിൽ മന്ത്രി എ

ബാലൻ ഉദ്ഘാടനം ചെയ്യും

അട്ടപ്പാടിയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗ ക്കാർക്ക് ആരോഗ്യ സംരക്ഷണവും പോഷകാഹാരവും ഉറപ്പാക്കി അഞ്ച് വർഷത്തിനകം ആരോഗ്യജനതയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സഹകരണ വകുപ്പും ഇ

എസ് സഹകരണ ആശുപത്രിയും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് അട്ടപ്പാടി സമഗ്ര ആരോഗ്യ പദ്ധതി കണ്ണൂർ ജില്ലയിലെ വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് ജില്ലാ പഞ്ചായത്ത് വിവിധ പദ്ധതികൾ നടപ്പാക്കും വിദ്യാർത്ഥികളുടെ സമഗ്ര പുരോഗതിക്കായി ബി പോസിറ്റീവ് പദ്ധതി ഇതിൽ പ്രധാനമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ് കെ

സുമേഷ് പറഞ്ഞു